കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കാൻ കൃതൃ ഇടപെടൽ നടത്തിയതിന് പ്രധാനമന്ത്രിയെ മായ രാഷ്ട്രപതി അഭിനന്ദിച്ചു

റെഡ്സോണിൽ നിയന്ത്ര്ണം തുടരും

തിങ്കളാഴ്ച മുതൽ രാജ്യത്തിന്റെ പകുതി പ്രദേശങ്ങളും സാധാരണപോലെപ്രവർത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ

കേരളത്തിൽ ഇന്ന് രണ്ടു പേർക്ക് കൂടി കോവിഡ് രോഗം സ്ഥിരീകരിച്ചു എട്ട് പേർ രോഗമുക്തരായി

കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത്

വൈറസിനെ പ്രതിരോധിക്കാൻ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിമാരുടെയും നേതൃത്വത്തിൽ ഫലപ്രദമായ നീക്കങ്ങളാണ് നടത്തിയതെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ചൂണ്ടിക്കാട്ടി ഇതിനെ ഇന്ത്യാമോഡൽ എന്ന് പറയാം കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇത് വിജയകരമാണെന്നാണ്

ഇപ്പോഴത്തെ വെല്ലുവിളി മറികടന്ന് ഇന്ത്യ സ്വയം പര്യാപ്തമായ രാജ്യമായി മാറുന്നതാണ് ഇനി കാണാൻ പോകുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു സാമ്പത്തിക ആഗോളവത്കരണത്തിൽ നിന്നും ആരോഗൃ ആഗോളവത്ക്കരണത്തിലേക്കും ലോകം മാറും

ൃഇ്ന്ത്യയെ പോലുള്ള വലുതും ജനപ്പെരുപ്പം കൂടിയത്ത്മൃത്യ രാജ്യങ്ങൾ ജനസംഖ്യ നിയന്ത്രണം പാലിക്ക്ക്ണ്ടെതുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു ന്യൂസ് ഡസ്ക് ആകാശവാണി

ഇതു സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയ മാർഗ്ഗരേഖ പുറത്തിറക്കി സംസ്ഥാനങ്ങളെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളേയും വിവിധ സോണുകളായി തിരിച്ചാണ് ലോക്ക് ഡൌൺ നിയന്ത്രണങ്ങൾ തുടരുക ഗ്രീൻ സോണിൽ കൂടുതൽ ഇളവുകൾ നൽകും എല്ലാ ബസ് ട്രെയിൻ മെട്രോ റെയിൽ സർവീസുകൾക്കുള്ള വിലക്കും തുടരും വിമാനസർവ്വീസുകളും ഉണ്ടാകില്ല റെഡ് സോണുകളിൽ സൈക്കിൾ റിക്ഷ ്ട്രഓട്ടോറിക്ഷ ടാക്സി കാബ് അന്തർ ജില്ലാ ബസ് സർവ്വീസ് ബ്ബാർബർ ഷോപ്പുകൾ സ്പാ സലൂൺ എന്നിവയ്ക്കുള്ളൂ നീരോധനം തുടരും നാല് ചക്രവാഹനങ്ങളിൽ ഡ്രൈവർറക്കൂടാതെ രണ്ട് പേർക്ക് യാത്ര ചെയ്യാം ഇരുച്യക്കുവാഹനങ്ങളിൽ ഒരാൾക്ക് മാത്രമേ ച്ച് അനുമതി ഉള്ളൂ നഗരപ്രദേശങ്ങളിൽ പ്രത്യേക സാമ്പത്തിക മേഖലകൾ കയറ്റുമതി കേന്ദ്രങ്ങൾ ഇൻഡസ്ട്രിയൽ ടൌൺഷിപ്പ് എന്നിവക്ക് അനുമതിയുണ്ട് റെഡ് സോണുകളിലുൾപ്പെട്ട ഗ്രാമപ്രദേശങ്ങളിൽ എല്ലാ വ്യവസായ പ്രവർത്തനങ്ങളും നിർമാണ പ്രവർത്തനങ്ങളും ആരംഭിക്കാം എന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു സോണിലും ഹോട്ടലുകളിൽ ഭക്ഷണം ഇരുന്ന് കഴിക്കാൻ അനുവദിക്കില്ല സ്കൂളുകൾ കോളേജുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ട്രെയിനിങ് കോച്ചിങ് സെന്ററുകൾ തുടങ്ങിയവയെല്ലാം എല്ലാ സോണിലും അടച്ചിടണം എല്ലാ സാമൂഹികകായിക വിനോദ പഠന സാംസ്കാരിക മത ചടങ്ങുകൾക്കും നിരോധനമുണ്ട്

വിനോദസഞ്ചാരികൾ വിദ്യാർത്ഥികൾ എന്നിവർ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും

ലോക്ഡൌണിനെ തുടർന്ന് നിരവധി ഡൽഹി വിദ്യാർത്ഥികളാണ് രാജസ്ഥാനിലെ കോട്ടയിൽ കുടുങ്ങിക്കിടക്കുന്നത്

കഴിഞ്ഞ രാത്രിയാണ് ട്രെയിൻ യാത്ര രൂട്ട്ടിയത്

തൊഴിലാളികളെ അവരുടെ വീടുകളിലെത്തിക്കാൻ ബീഹാർ സർക്കാർ ബസുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്

വയനാട്ട്ടിലും കണ്ണൂരിലും ഓരോരുത്തർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് എട്ടു പേർ രോഗമുക്തി നേടിയതായും കോവിഡ് അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് അറിയിച്ചു കേന്ദ്ര സർക്കാർ മുന്നോട്ടുവെച്ച പൊതുവായ മാർഗനിർദേശങ്ങളുടെ ചട്ടക്കൂടിന് അകത്തുനിന്നുകൊണ്ടായിരിക്കും സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതിനുള്ള മാർഗ നിർദേശങ്ങൾ ഉടനെ പുറപ്പെടുവിക്കുമെന്നും അറിയിച്ചു റെഡ് സോൺ ജില്ലകളിലെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ കർശനമായി തുടരും എന്നാൽ മറ്റുപ്രദേശങ്ങളിൽ ഇളവുകൾ ഉണ്ടാകും

രണ്ടാം ഗഡു തുക ബാങ്കുകൾക്ക് കൈമാറി കഴിഞ്ഞു

ഗുണഭോക്താക്ക് ബാങ്കിലെത്തി തുക കൈപ്പറ്റാനുള്ള തീയതിയും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് സാമൂഹ്യ അകലം പാലിക്കുന്നത് ഉറപ്പാക്കുക ലക്ഷ്യമിട്ടാണിത്

തൊഴിലാളികളിൽ നിന്നും നാട്ടില്ലേക്ക് പോകുന്നതിനുള്ള യാത്രാക്കൂലി മാത്രമേ ഇൌടാക്കൂട്ടിവു എന്നും ബസ്സിന്റെ മടക്കയാത്രക്ക് തുക വാങ്ങരുടൂതെന്നും കർണ്ണാടക മുഖ്യമന്ത്രി ബി